ശൈലജ സംസ്ഥാന ബജറ്റ് നാളെ

പുതിയതായി ആർക്കും കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രി കെ

രോഗബാധ സ്ഥിരീകരിച്ച മൂന്നുപേരുടെയും നില തൃപ്തികരമാണെന്ന് മന്ത്രി പറഞ്ഞു ചൈനയിലെ ചില സർവകലാശാലകൾ വിദ്യാർത്ഥികളെ തിരിച്ചുവിളിക്കുന്നുവെന്ന പരാതി നോർക്കയുടെയും കേന്ദ്രത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നിരീക്ഷണ കാലാവധി കഴിയുന്നതുവരെ വിദ്യാർത്ഥികൾക്ക് ഇളവ് നൽകണമെന്ന് സർവകലാശാലകളോട് ആവശ്യ പ്പെടാൻ കേന്ദ്രത്തിനോട് അഭ്യർത്ഥിക്കും

ബീച്ച് ആശുപത്രിയിൽ നാലുപേരും മെഡിക്കൽ കോളേജിൽ ഒരാളും ഐസൊ ലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലാണ് ഫലം നെഗറ്റീവായ രണ്ടുപേരെ ഡിസ്ചാർജ്ജ് ചെയ്തു

കൊല്ലം ജില്ലയിൽനിന്നും പരിശോധനക്കയച്ച മൂന്നു സാമ്പിളുകളുടെയും ഫലം നെഗറ്റീവാണ്

ആശുപത്രികളിൽ നാലുപേർ നിരീക്ഷണത്തിലുണ്ട്

ഇവരിൽ മൂന്നുപേർ കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ്

സംസ്ഥാന ബജറ്റ് നാളെ നിയമസഭയിൽ രാവിലെ ഒമ്പതിന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിക്കും സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നിർദേശങ്ങൾ ബജറ്റിലുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് മന്ത്രി ഇന്ന് നിയമസഭയിൽ വയ്ക്കും

സെൻസസ് പ്രവർത്തനങ്ങളും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പ്രവർത്തന ങ്ങളും രണ്ടാണെന്നും എൻ പി ആർ പുതുക്കലുമായി ബന്ധപ്പെട്ട ചോദ്യാ വലിക്ക് കേരളത്തിൽ വിവരശേഖരണം നടത്തുന്നില്ലെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് ജില്ലാ കലക്ടർമാർക്ക് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകി സഹകരണ ബാങ്കുകളെ റിസർവ്വ് ബാങ്കിന്റെ മാർഗ്ഗനിർദ്ദേശ ങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും കീഴിലാക്കുന്ന നിയമ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി സ്ഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ഉത്തരവാദിത്തവും സുതാര്യതയും ഉറപ്പാക്കാൻ ഭേദഗതി വഴി സാധിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിർഭയുകേസിലെ പ്രതികളിൽ ഒരാളായ അക്ഷയ് താക്കൂറിന്റെ ദയാ ഹർജിയും രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് തള്ളി ഇതോടെ കേസിൽ രാഷ്ട്രപതിക്ക് നൽകിയ എല്ലാ ദയാഹർജികളിലും തീർപ്പായി കേസിൽ വധശിക്ഷക്ക് വിധിച്ച നാല് പ്രതികളിൽ വിനയ് ശർമയുടെയും മുകേഷ് സിങ്ങിന്റെയും ദയാഹർജി നേരത്തെ തള്ളിയിരുന്നു പവൻ ഗുപ്ത ഇതുവരെ ദയാഹർജി നൽകിയിട്ടില്ല

രാത്രി വൈകിയും ചോദ്യം ചെയ്യൽ പൂർത്തി യായിട്ടില്ല

ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ യു എസ് സെനറ്റ് ഇംപീച്ച്മെന്റ് വിചാരണയിൽ കുറ്റവിമുക്തനാക്കി അമേരിക്കൻ കോൺഗ്രസ് ട്രംപിനെതിരെ കൊണ്ടുവന്ന രണ്ട് ഇംപീച്ച്മെന്റ് പ്രമേയങ്ങളും സെനറ്റ് വോട്ടിനിട്ട് തള്ളുകയായിരുന്നു തുഞ്ചൻ ഉത്സവത്തിന് ഇന്ന് തിരി തെളിയും

മ്പിലാണ് ആഘോഷങ്ങൾ കൂടുതൽ വിവരങ്ങളുമായി ജി

മറൈൻ ഡ്രൈവ് മൈതാനിയിൽ ഡോക്ടർ എം ലീലാവതിയും പ്രൊഫസർ എം

സാനുവും ചേർന്ന് മേള ഉദ്ഘാടനം ചെയ്യും

ദേശീയ സീനിയർ വനിതാഹോക്കി എ ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് കൊല്ലം ആശ്രാമം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ രാവിലെ ആദ്യ കാർട്ടർ ഫൈനലിൽ മധ്യപ്രദേശ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ നേരിടും രണ്ടാം മത്സരത്തിൽ മധ്യപ്രദേശ് ഹോക്കി അക്കാദമി പഞ്ചാബിനെ നേരിടും ഉച്ചയ്ക്ക് മൂന്നാം കാർട്ടറിൽ ഹരിയാന ഹോക്കി ഒഡീഷയുമായി ഏറ്റുമുട്ടും വൈകിട്ട് അവസാന ക്വാർട്ടർ ഫൈനലിൽ മഹാരാഷ്ട്രയ്ക്ക് ഹോക്കി ജാർഖണ്ഡാണ് എതിരാളി ടൂർണമെന്റിലെ സെമിഫൈനൽ മത്സരങ്ങൾ മറ്റന്നാളും ലൂസേഴ്സ് ഫൈനലും ഞായറാഴ്ചയു മാണ് കേണൽ സി

കേരളവും ജമ്മു കാശ്മീരും തമ്മിൽ കോണാർ വയൽ സ്റ്റേഡിയത്തിലാണ് മത്സരം

സൌകര്യങ്ങൾ ഒരുക്കി നവീകരിക്കാൻ വിനോദസഞ്ചാർ വകുപ്പും ഡി ടി പി സിയും പീരുമേട് പഞ്ചായത്തും സംയുക്ത യോഗത്തിൽ തീരുമാനിച്ചു

ഉദ്യാനവും സുര ക്ഷാസംവിധാനവും കൂട്ടികൾക്ക് റൈഡ് സൌകര്യങ്ങളും ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും പട്ടിക ജാതി പട്ടിക വർഗ്ഗ വികസന വകുപ്പുകളും കിർത്താഡ്സും ചേർന്ന് കണ്ണൂരിൽ സംഘടിപ്പിച്ച ഗദ്ദിക മേളയിൽ റെക്കോർഡ് വിറ്റു വരവ്

വരും വർഷങ്ങളിൽ കണ്ണൂർ മാതൃകയിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും ഗദ്ദിക മേള ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി എ കെ ബാലൻ പറഞ്ഞു

ഉച്ചയ്ക്ക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ആരോഗ്യ വകുപ്പിലെയും ഹരി തകേരളം മിഷനിലെയും വിദഗ്ദ്ധർ ക്ലാസുകളെടുക്കും

രണ്ടു ലക്ഷ ത്തിലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കൊച്ചി ദക്ഷിണ കമാന്റിലെ നേവൽ എയർ ക്രാഫ്റ്റ് യാർഡിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫസ്റ്റ് ഡ് കവർ ദക്ഷിണ നാവിക കമാന്റ് മേധാവി വൈസ് അഡ്മിറൽ എ

നേവൽ ഏവിയേഷൻ ഹിസ്റ്ററി സെല്ലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ് ് ് ് ് ് ് ് ശബരിമലയിലെ സ്ത്രീപ്രവേശനം ഉൾപ്പെടെ വിഷയങ്ങൾ ഒൻപ തംഗ ഭരണഘടനാ ബഞ്ചിന് വിട്ട നടപടിയുടെ സാധുതയിൽ ഇന്ന് സൂപ്രീം കോടതിയിൽ വാദം നടക്കും വിശാലബഞ്ച് രൂപീകരണ നടപടി ശരിയോ എന്ന വിഷയം മാത്രമായിരിക്കും ഇന്ന് പരിഗണിക്കുകയെന്ന് സുപ്രീം കോടതി അറിയിച്ചു